ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും പേർക്ക് കോവിഡ് ബാധിക്കുന്നത്

ത മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ എം

വീരേന്ദ്രകുമാർ അന്തരിച്ചു ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വാർത്തകൾ വിശദമായി ലോക്ഡൌൺ വീണ്ടും നീട്ടുന്നതിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം ആരാഞ്ഞു നാലാംഘട്ട ലോക്ഡൌൺ മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രിമാരുമായി ടെലഫോണിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി ജൂൺ ഒന്നുമുതൽ തുറന്ന് നൽകേണ്ട മേഖലകളും സംസ്ഥാനങ്ങളുടെ ആശങ്കകളും സംബന്ധിച്ച് അവരുമായി സംസാരിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ആദ്യമായാണ് ഒരു ദിവസം ഇത്രയുപേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്നത്

കോട്ടയത്ത് മൂന്ന് പേർക്കും കൊല്ലം ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ഓരോർത്തർക്കും പരിശോധനാ ഫലം പോസിറ്റീവായി മൂന്ന് പേർ ഇന്നലെ രോഗമുക്തി നേടി പുതുതായി ആറ് സ്ഥലങ്ങൾ കൂടി ഹോട്സ്പോട്ടായി രുര എറണാകുളം ജില്ലയിൽ ഇന്നലെ രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ജില്ലയിൽ കോവിഡ് സമൂഹ വ്യാപന അതിനിടെ സാധ്യതയുണ്ടോ എന്നറിയാൻ ദിനംപ്രതി നൂറോളം പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മന്ത്രി വി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

ഏഴുപേർക്കാണ് ഇന്നലെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തിയ കുന്നംകുളം സ്വദേശി വേലൂപ്പാടം സ്വദേശിനി പുതുക്കാട് സ്വദേശി വരാക്കര സ്വദേശി എന്നിവർക്കും ദോഹയിൽ നിന്ന് തിരിച്ചെത്തിയ അന്നമനട സ്വദേശി മുബൈയിൽ നിന്ന് തിരിച്ചെത്തിയ കോലഴി സ്വദേശി ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ കടവല്ലൂർ സ്വദേശിയായ യുവതി എന്നിവർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് രുമ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ആറു പേരിൽ രണ്ട് പേർ വിദേശത്ത് നിന്നും മൂന്ന് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്

റിയാദിൽ നിന്നെത്തിയ ഫറോക്ക് സ്വദേശി ബഹറൈനിൽ നിന്നെത്തിയ തുറയൂർ സ്വദേശി ചെന്നൈയിൽ നിന്നെത്തിയ കൊയിലാണ്ടി അഴിയൂർ സ്വദേശികളും ഗുജറാത്തിൽ നിന്നും വന്ന വളയം സ്വദേശിക്കും കണ്ണൂരിലെ പോസിറ്റീവായ വ്യക്തിയുടെ പ്രാഥമിക സമ്പർക്കപ്പട്ടികയിലെ തൂണേരിയിലെ മത്സ്യമൊത്ത വ്യാപാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

രുമ കോട്ടയം ജില്ലയിൽ അബുദാബിയിൽ നിന്ന് എത്തിയ ചങ്ങനാശേരി വെരൂർ സ്വദേശി ദമാമിൽ നിന്ന് വന്ന വാഴൂർ കൊടുങ്ങൂർ സ്വദേശി ചങ്ങനാശേരി മാമൂട് സ്വദേശിനി എന്നിവർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

രണ്ടാമത്തെ പരിശോധനയിലാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ദരദ ഇടവേളക്കുശേഷമാണ് ഇടുക്കി ജില്ലയിൽ ഒരാൾക്കു കോവിഡ് സ്ഥിരീകരിക്കുന്നത്

ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

ദേദ മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം അറുപതിനായിരത്തോട് അടുക്കുന്നു

രദേ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റേറിയനും പ്രഭാഷകനും എഴുത്തുകാരനുമായ എം

മാതൃഭൂമി മാനേജിങ്ങ് ഡയറക്ടറായിരുന്ന അദ്ദേഹം പിടിഐ ചെയർമാനായും ഇന്ത്യൻ ന്യൂസ്പേപ്പർ സൊസൈറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്

അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസവും അനുഭവിച്ചു

ജനതാദൾ എസ് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ജനതാദൾ യുണൈറ്റഡ് എന്നിവയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു

ഹൈമവത ഭൂവിൽ ബുദ്ധന്റെ ചിരി ഡാന്യുബ് സാക്ഷി ഗാട്ടും കാണാചരടുകളും രാമന്റെ ദുഖം സമന്വയത്തിന്റെ വസന്തം തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വീരേന്ദ്രകുമാറിന് ലഭിച്ചിട്ടുണ്ട്

വീരേന്ദ്രകുമാറിന്റെ മരണം ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു